സെക്രട്ടേറിയറ്റിലേക്ക് ബി ജെ പി മാർച്ചും ഭരണഘടനാ ധാർമ്മികതയ്ക്ക് സുപ്രീം കോടതി അമിത പ്രാധാന്യം നൽകുന്നുവെന്ന് അറ്റോർണി ജനറൽ കെ

സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം പാലക്കാടിന് ആലപ്പുഴയിൽ സമാപിച്ച കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാടിയ കോഴി ക്കോടിനെ മൂന്നുപോയിന്റിനാണ് പാലക്കാട് തോല്പിച്ചത്

മേളയുടെ മൂന്നാം ദിവസം പുലർച്ചെയോടെ യാണ് മത്സരങ്ങൾ സമാപിച്ചത്

പ്രളയാനന്തര സാഹ ചര്യത്തിൽ ആദ്യം ഉപേക്ഷിച്ച കലോത്സവം പിന്നീട് മൂന്നു ദിവസം കൊണ്ട് ആർഭാടങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു

അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുടുങ്ങിക്കിടന്നാൽ ഒരു നാടിനും മുന്നോട്ട് പോകാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ കണ്ണൂരിൽ അഭിപ്രായപ്പെട്ടു

ഇന്ന് രാവിലെ പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൌർ ഉദ്ഘാടനം ചെയ്യും

എൽ എമാർ നടത്തുന്ന സത്യ ഗ്രഹത്തിന് അഭിവാദ്യമർപ്പിച്ച് ഇന്ന് യു ഡി എഫ് പ്രവർത്തകർ നിയമസഭ യിലേക്ക് മാർച്ച് നടത്തും ശബരിമല വിഷയത്തിൽ ബി ഐ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എട്ടു ദിവസമായി നടത്തുന്ന നിരാഹാരസമരത്തോട് ഐക്യദാർഡ്യം പ്രഖ്യാപിച്ച് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിലും ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കും ഉപവാസമനുഷ്ഠിക്കുന്ന രാധാകൃഷ്ണന്റെ ആരോഗ്യനില വഷളായിട്ടുണ്ട് കോഴിക്കോട്ട് ബി ജെ പി ഇന്ന് രാവിലെ കളക്ടറേറ്റ് മാർച്ച് സംഘ ടിപ്പിക്കും തിരുവനന്തപുരത്ത് നിരാഹാരമനുഷ്ഠിക്കുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണന്റെ ജീവൻ രക്ഷി ക്കണമെന്നും ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നും ഭക്തർക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കണമെന്നുമാവശ്യപ്പെട്ടാണ് മാർച്ച് ജയിൽമോചിതനായ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകും വൈകിട്ട് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിലെ സ്വീകരണത്തിനുശേഷം വാഹനജാഥയുടെ അകമ്പടിയോടെ തുറന്ന വാഹ നത്തിൽ കോഴിക്കോട്ടെത്തുന്ന സുരേന്ദ്രന് മാനാഞ്ചിറയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും

ഭൂരിപക്ഷ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ഭരണഘടനാ ധാർമ്മികത മാനദണ്ഡമാകുന്നത് അനു ചിതമാണെന്ന് അദ്ദേഹം വിലയിരുത്തി ഈ നീക്കം മുന്നോട്ടുപോകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുമെന്നും വേണുഗോപാൽ ജെ ദാദാചാൻജി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ സമ്പൂർണ്ണ പാർലമെന്റ് സമ്മേളനമാണിത് ഇതിനുമുന്നോടിയായി ഇന്ന് ഗവൺമെന്റ് സർവ്വകക്ഷിയോഗം വിളിച്ചു ലോക്സഭാ സ്പീക്കർ സുമിത്രമഹാജൻ ഇന്ന് കക്ഷിനേതാക്കളെ കാണും രാജ്യസഭാ അധ്യ ക്ഷൻ എം വെങ്കയ്യനായിഡുവും സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്

അടുത്തമാസം എട്ടുവരെയാണ് സമ്മേളനം അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലും പ്രാധാന്യമേറിയതാണ് അഞ്ചു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുഫലം സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണ ങ്ങളെ ഔഷധങ്ങളായി പരിഗണിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ഇറ ക്കി

ഇവയുടെ ഗുണനിലവാരവുംശേഷിയും ഉറപ്പാക്കാനാണ് കേന്ദ്രനടപടി സംസ്ഥാനത്ത് വൈദ്യുത വാഹന നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ശില്പശാല രാവിലെ തിരുവനന്തപുരത്ത് ആരംഭിക്കും ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും

ഉച്ചയ്ക്കുശേഷം ചേരുന്ന മഹാസമ്മേളനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും

തുടർന്ന് രാത്രിയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി കരിമല വഴി സന്ധ്യക്കു ശേഷം യാത്ര നിരോധിച്ചു ഉരക്കുഴി പാണ്ടിത്താവളം ഇലവുങ്കൽ ളാഹ പുല്പുമേട് എന്നിവിടങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി വനംവകുപ്പ് അറിയിച്ചു ശബരിമല പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിയിക്കാനും തലപ്പാറ മലയിൽ പൂജ നടത്താനും അവകാൾം ലഭിക്കണമെന്ന് മലവർഗ്ഗ മഹാജന സംഘം സംസ്ഥാന പ്രസിഡന്റ് ഇ

രാഘവൻ പത്തനംതിട്ടയിൽ ആവ ശ്യപ്പെട്ടു മകരവിളക്ക് തെളിയിച്ചതിന്റെ യഥാർത്ഥ അവകാശി മല ഉള്ളാടൻ സമുദായമാണെന്നും ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഗവൺമെന്റ് കമ്മീഷനെ നിയോഗിക്കണമെന്നും രാഘവൻ ആവശ്യമുന്നയിച്ചു

ഇന്ത്യക്ക് വിജയം നാലുവിക്കറ്റിന് അപ്പുറമാണ്

വൈദ്യുത ബോർഡ് എംബ്ലോയീസ് സഹകരണ സംഘത്തിന്റെ കെയർഹോം പദ്ധതി വിഹിതം കൈമാറുന്ന ചടങ്ങ് പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെയർഹോം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി എ

ബാലൻ നിർവഹിച്ചു

് ് ് ് ് ് ് ് ജനുവരി ഒന്നിന് രൂപീകരിക്കുന്ന വനിതാമതിൽ സ്ത്രീശാക്തീ കരണത്തിന് മാതൃകയായി ലോകശ്രദ്ധയാകർഷിക്കുമെന്ന് മന്ത്രി എ

നവോത്ഥാനമൂല്യസംരക്ഷണം ലിംഗ സമത്പം എന്നീ മുദ്രാവാക്യങ്ങളോടുകൂടിയായിരിക്കും മതിൽരൂപീകരണ മെന്നും അദ്ദേഹം പറഞ്ഞു

ഡൽഹിയിൽ നിന്ന് ദുബായ് ഷാർജ എന്നിവിടങ്ങളിലേക്ക് കണ്ണൂർവഴി സർവ്വീസും തുടങ്ങും ബെങ്കലുരു ഹൈദരാബാദ് നഗരങ്ങളുമായി ബന്ധി പ്പിച്ച് സ്പൈസ് ജെറ്റും മുംബൈ ഡൽഹി നഗരങ്ങളിലേക്ക് ഇൻഡിഗോയും വൈകാതെ സർവ്വീസ് ആരംഭിക്കും

ജനറൽ ഇൻഫർമാറ്റിക്സ് ചോദ്യപേപ്പർ ചോർന്നുവെന്നാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായത്

് ് ് ് ് ് ് ് സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ യാത്രാസൌകര്യം മെച്ചപ്പെട്ട ടുത്താൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ജെ

ഇതിനായി പുതിയ റോഡുകളും പഴയ റോഡുകളുടെ പ്പുനർനിർമ്മാ ണവും നടത്തും

കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളെ തുടർന്നുണ്ടായ നിരോധനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ജോയ്സ് ജോർജ്ജ് എം

ഇതുസംബന്ധിച്ച അന്തിമ വിജ്ഞാപനം ഇറങ്ങുന്നതുവരെ വിശ്രമമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്ത മാക്കി

പാലക്കാട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനെ ആയുഷ് ഗ്രാമ മായി പ്രഖ്യാപിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന് ദേശീയ ആയുഷ് മിഷൻ നടപ്പാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം ഇത് നടപ്പാക്കുന്ന സംസ്ഥാനത്തെ എട്ടാമത് പഞ്ചായത്താണ് വാണിയംകുളം

സാലറി ചലഞ്ച് വേണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും ഗവൺമെന്റ് ജീവനക്കാരെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള പഞ്ചായത്ത് എംപ്പോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുരളീധരൻ

സാമൂഹ്യക്ഷേമ പെൻഷനുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷ നുകളും ക്രിസ്തുമസിനുമുമ്പ് വിതരണം ചെയ്യണമെന്ന് കേരള ഫെഡറേ ഷൻ ഓഫ് ദി ബ്ലൈന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയോഗം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു

ഇന്നലെ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു യുവാക്കൾ മരിച്ചു റെമീസ് മുഹമ്മദ് അമീൻ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മറ്റൊരാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു